ത കോവിഡ് സാഹചര്യത്തിൽ അടുത്ത ചില ആഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തേക്കും

വരാനിരിക്കുന്ന സ്ഥിതി ഇനി പുലർത്തുന്ന ജാഗ്രത അനുസരിച്ചായിരിക്കും സന്നദ്ധ സേവനം ചെയ്യാൻ കഴിയുന്നവർ സമൂഹത്തിന്റെ ആകെ ആരോഗ്യം ഉറപ്പു വരുത്താൻ മുന്നിട്ടിറങ്ങണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ജനകീയ മാതൃകയിൽ ഊന്നിയ കോവിഡ് അതിജീവനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിനെപ്പറ്റി കാര്യമായ വൈദഗ്ദ്ധ്യം ഇല്ലാത്ത പലരും അശാസ്ത്രീയവും അബദ്ധജഡിലവുമായ നിരീക്ഷണങ്ങൾ ആധികാരികമായി പ്രസ്താവിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പിണറായി വിജയൻ വിലയിരുത്തി

അറിവില്ലാത്ത കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് ജനങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം രേര കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ സംസ്ഥാനത്ത് കോവിഡ് ബ്രിഗേഡ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് പുറമെ കരാർ അടിസ്ഥാനത്തിലും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഇതിനായി കണ്ടെത്തും ബ്രിഗേഡ് അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും രോഗം ബാധിച്ചാൽ സൌജന്യ ചികിത്സയും നൽകും

ന്യൂസ് ഡസ്ക് ആകാശവാണി രുര ബലിപെരുന്നാളിന്റെ ഭാഗമായ ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തുമെന്ന് സമുദായ നേതാക്കൾ ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു മത നേതാക്കളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസ് ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത് ആഘോഷങ്ങൾ ചുരുക്കി നിർബന്ധിത ചടങ്ങുകൾ മാത്രം നടത്താമെന്ന ധാരണയാണ് പൊതുവിൽ ഉണ്ടായിരിക്കുന്നത് പൊതു സ്ഥലങ്ങളിൽ ഇദ്ഗാഹ് ഉണ്ടാവില്ല പള്ളികളിൽ മാത്രമായിരിക്കും പ്രാർത്ഥനാ ചടങ്ങ്

ബലികർമ്മവുമായി ബന്ധപ്പെട്ടവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്താനും ധാരണയായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ജില്ലകളിലും കോവിഡ് മറ്റ് സ്ഥിരീകരിച്ചവരിൽ ഏറിയ പങ്കും സമ്പർക്കം വഴി രോഗം പകർന്നവരാണ്

രുമ കാസർകോട്ടും കോവിഡ് സമ്പർക്ക രോഗബാധ വർദ്ധിക്കുകയാണ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ

ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ നൽകുന്ന വിവരങ്ങളിലേക്ക്

ജൂലായ് നാലിന് ഇയാൾ ഹാർബറിൽ ധാരാളം ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് നടപടി

രണ്ട് കൌൺസിലർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി പൊന്നാനി താലൂക്കിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനാജ്ഞ പിൻവലിച്ചതായി മലപ്പുറം പൊലീസ് സൂപ്രണ്ട് അറിയിച്ചു രുമ കോവിഡ് വ്യാപനം വർധിച്ച ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ നാലു വാർഡുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു

രുമ കീം പരീക്ഷ എഴുതിയ വിദ്യാർഥികൾക്ക് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽപ്പറത്തി പരീക്ഷ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് എം കെ രാഘവൻ എം പി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു രേര കോവിഡ് വ്യാപത്തിനൊപ്പം കടലാക്രമണവും രൂക്ഷമായ എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തെ തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർ എന്നിവരോട് ആവശ്യപ്പെട്ടു

ഗൾഫ് നാടുകൾക്ക് പുറമെ സാൻഫ്രാൻസിസ്കോ മാലദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന സർവ്വീസുകളും ഇതിൽ ഉൾപ്പെടും

ഇ കിറ്റ് അടക്കം കൈകാര്യം ചെയ്യുന്ന വാണിജ്യ സ്ഥാപനങ്ങളും ഷോപ്പിംഗ് മാളുകളും മറ്റ് സ്ഥാപനങ്ങൾ ഓഫീസുകൾ എന്നിവയും ഇതേ നടപടിക്രമം പാലിക്കേണ്ടതാണ് ദേദ രൂക്ഷമായ കടലാക്രമണ കെടുതി നേരിടാൻ ജലവിഭവ വകുപ്പ് ഒമ്പത് ജില്ലകൾക്ക് രണ്ടുകോടി രൂപ വീതം അനുവദിച്ചു കടൽഭിത്തി നിർമ്മാണവും അറ്റകുറ്റപ്പണികളും അടിയന്തരമായി നടത്താനാണ് തുകയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു

മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ദേശീയ അന്വേഷണ ഏജൻസി ഇന്നലെ അഞ്ച് മണിക്കൂറോളം ചോദ്യം ചെയ്തു

രുമ സ്വർണ്ണക്കടത്ത് കേസിൽ ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ച് ബി ജെ

കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി

സജീവൻ അറിയിച്ചു